ലോക്ക്ഡൌൺ നീട്ടിയ സാഹചരൃത്തിൽ രാജ്യത്ത് ട്രെയിൻ സർവീസുകളും ആഭ്യന്തര വിദേശ വിമാന സർവീസുകളും അടുത്തമാസം മൂന്നു വരെ നിർത്തീപ്പുവെച്ചു

പരിമിതമായ ആഘോഷങ്ങളിലൊതുങ്ങി മലയാളി കൾക്ക് ഇന്ന് വിഷു

വിശദമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നാളെ പുറത്തിറക്കുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു പാവപ്പെട്ടവരുടെയും ദിവസവേതനക്കാരുടെയും താത്പര്യം സർക്കാരിന്റെ പരീഗണനയിൽ ഉണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കോവിഡിനെതിരായ രാജ്യത്തിന്റെ പോരാട്ടം ശക്തമായി തുടരുന്ന തായും അദ്ദേഹം അറിയിച്ചു ജനങ്ങൾ പുലർത്തുന്ന കഴുമയും അപടിച്ച ക്കവും പ്രശംസനീയമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ആഗോള തലത്തിൽ മാതൃകയാണ് ഇന്ത്യയുടെ കോവിഡ് പ്രതിരോധ നടപടികൾ

മുതിർന്ന പൌരന്മാരെ സഹായിക്കുക ലോക്ക്ഡൌൺ നിയമങ്ങൾ കർശനമായി പാലിക്കുക വീട്ടിൽ നിർമ്മിച്ച മാസ്കുകളുടെ ഉപയോഗം വ്യാപകമാക്കുക ആയുഷ് മന്ത്രാലയം നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിച്ച് രോഗപ്രതിരോധം ശക്തമാക്കുക ആരോഗ്യ സേതു ആപ്പ് ഡൌൺലോഡ് ചെയ്യുക പാവപ്പെട്ടവർക്ക് ഭക്ഷണമുൾപ്പെടെ നൽകി സഹായിക്കുക സഹപ്രവർത്തകരോട് അനുതാപപൂർവ്വം പെരുമാറുക ആരെയും ജോലിയിൽ നിന്ന് പിരിച്ചു വിടാതിരിക്കുക ആരോഗൃ പ്രവർത്തകരെ ബഹുമാനിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് പ്രധാനമന്ത്രി മുന്നോട്ട് വച്ചത്

ഇ ടിക്കറ്റുകളുടെ റീഫണ്ട് ക്യാൻസലേഷൻ ച്ചെയ്യാതെ തന്നെ നൽകുമെന്ന് റെയിൽവേ അറിയിച്ചു

ഇതിൽ അഞ്ച് പേർ ദുബായിൽ നിന്നും വന്നവരാണ്

ശൈലജ നിയന്ത്രണങ്ങൾ തുടരുമെന്നും രോഗം നിയന്ത്രണ വിധേയമാണെങ്കിലും പൂർണ്ണമായി വിമുക്തമായി എന്ന് പറയാറായിട്ടില്ലെന്നും ആരോഗ്യമന്ത്രി കെ

ഇപ്പോൾ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ജില്ലകളിൽ പോലും നിയന്ത്രണങ്ങൾ തുടരേണ്ടതുണ്ടെതുണ്ടെന്നും മന്ത്രി അറിയിച്ചു

ലോക്ഡൌൺ ഇനിയും നീട്ടുമ്പോൾ ജനങ്ങളുടെ ഉപജീവനം ഉറപ്പുവരുത്തുന്നതിനുള്ള നടപടികൾ കേന്ദ്രഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവണം രാജ്യത്ത് രോഗനിർണ്ണയ സംവിധാനം ഫലപ്രദമാക്കിയാൽ മാത്രമേ ലോക്ഡൌൺ ഫലപ്രദമാവുകയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു

രോഗികളുമായി പോലീസുകാർ അടൂത്ത് ്ഇടപഴകേണ്ട സാഹചര്യത്തിൽ രോഗം പകരാതിരിക്കാനാണ് നടപ്പട്ടി

മുഖ്യമന്ത്രി ഇടപെട്ടാണ് ഗർഭിണിയെയും മൂന്ന് വയസുള്ള മകളെയും കടത്തിവിടാൻ തീരുമാനമായത് എന്നാൽ കൂടെയുള്ളവർ അതിർത്തിയിൽ തന്നെ തങ്ങുകയാണ് വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് പ്രതിനിധി അരുൺ വിൻസെന്റ്

ഈസ്റ്റർ വിഷു വിപണി ലക്ഷ്യമിട്ട് ശേഖരിച്ച കോടിക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയാണ് ഇപ്പോൾ വ്യാപാരികൾ വിശദാംശങ്ങളുമായി ആകാശവാണി കാസർകോഡ് പ്രതിനിധി പി

സംസ്ഥാന ഗവൺമെന്റുകളുമായി ചേർന്ന് കുടിയേറ്റ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും കൺട്രോൾ റൂമുകൾ ശ്രമിക്കും

നവോത്ഥാന നായകനും സാമൂഹിക പുരിഷ്കർത്താവുമായിരുന്ന അദ്ദേഹം അധസ്ഥി തരുടെ ഉന്നമനത്തിനായി ക്കാലവും പ്രവർത്തിച്ചു ഇന്ത്യയുടെ സാമൂഹിക സാമ്പത്തിക ് മേഖലകളിൽ നിർണ്ണായകമായ സ്വാധീനം ചെലുത്താൻ ഡോ

കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട പുതുവർഷത്തുടക്കം കൂടിയാണിത് വിഷുക്കണി ഒരുക്കിയും കൈനീട്ടം നൽകിയുമാണ് മലയാളികൾ വിഷുവിനെ വരവേറ്റത് എന്നാൽ ലോക്ഡൌൺ പശ്ചാത്തലത്തിൽ ഈ വർഷം വിഷു ആഘോഷം വീടുകളിൽ മാത്രമായി ഒതുങ്ങി നിൽക്കുകയാണ് ക്കുക്കുക്കുക്ക വിഷു വിപണി ഇൻഡ്രോ വിഷു വിപണി ലക്ഷ്യമിട്ട് രാജസ്ഥാനിൽ നിന്നുള്ള അതിഥി തൊഴിലാളികൾ നിർമ്മിച്ച ശ്രീകൃഷ്ണ പ്രതിമകൾക്ക് ഓൺ ലൈൻ വഴി വിപണി കണ്ടെത്തി അതിജീവനത്തിന്റെ പുതിയ സന്ദേശം നൽകുകയാണ് ആലപ്പുഴയിലെ മാരാരിക്കുളം സ്വദേശികൾ വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ പ്രതിനിധി ആർ

വിശദാംശങ്ങളുമായി നരേന്ദ്രമോഹൻ

ഇംഗ്ലണ്ടിന് പുറമേ ബെൽജിയവും തുർക്കിയും നെതർലാൻഡ്സും ആണ് യൂറോപ്പിൽ കൂടുതൽ മരണങ്ങളും കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന രാജ്യങ്ങൾ തുർക്കിയിൽ കേസുകളുടെ എണ്ണം അറുപതിനായിരം കടന്നു പക്ഷേ ബെൽജിയത്തിലും നെതർലാൻഡ്സിലും പുതിയ കേസുകളുടെ എണ്ണം കുറഞ്ഞു വരികയാണ് റഷ്യയിലും ബ്രസീലിലും കേസുകൾ കൂടിവരികയാണ്

റഷ്യയുമായി അതിർത്തി പങ്കിടുന്ന വടക്കൻ മേഖലയിലാണ് രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നത്

ഇത്ത് ക്ടുട്ടർന്ന് ചൈനീസ് ഭരണകൂടം ഈ അതിർത്തി അടയ്ക്കുകയും വിദ്ദേൾത്ത്ു നിന്നുമെത്തുന്നവരിലൂടെ രണ്ടാംഘട്ട കോവിഡ് വ്യാപനമുണ്ട്രിക്കുതീരിക്കാൻ കർശന നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു

പുതുക്കിയ തീയതികൾ പിന്നീട് അറിയിക്കും